കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം

സ്ഥാപിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭ അനുമതി നൽകി

സ്പീക്കറുടെ ഡയസിൽ കയറി മുദ്രാവാകൃം വിളിച്ച പ്രതിപക്ഷ ന് എം എൽ എ

പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു

നിർമ്മാതാക്കളെ ഇന്ത്യിയിലേക്ക് ആകർഷിക്കാനാകുമെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ

ഇന്ത്യയുടെ മനുഭാക്കറിന് സ്വർണം

കൂടുതൽ വിവരങ്ങളുമായി സുനീഷ് വോയ്സ് രാജ്യത്തെ ര ാമത്തെ വലിയ പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ക യ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ്നോർത്ത് ഇൌസ്റ്റേൺ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ ലിമിറ്റഡ് ടെറി ഹൈഡ്രോ ഡവലപ്മെന്റ് കോർപ്പറേഷൻ ഇന്ത്യാ ലിമിറ്റഡ് എന്നിവയുടെ ഓഹരികളാണ് വിറ്റഴിക്കുന്നത്

ഇന്നലെ ന്യൂഡൽഹിയിൽ കേന്ദ്ര മന്ത്രിസഭായോഗത്തിന് ശേഷം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് ഇക്കാര്യം അറിയിച്ചത്

ലഡാക്കിനെ കേന്ദ്രഭരണ പ്രദേശമാക്കിയതിനെ തുടർന്ന് ലഡാക്കിന്റെ തനതായ സംസ്കാരവും പാരമ്പര്യ വൈദ്യശാസ്ത്രവും പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കുന്നത് പുറത് മറ്റ് രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾക്കും ഈ സമ്പ്രദായത്തെക്കുറിച്ച് പഠിക്കാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവസരമൊരുക്കും ആയുർവേദത്തിന് സമാനമായ സോവ റിഗ്പ ഇന്ത്യയിലെ ഹിമാലയൻ അതിർത്തി മേഖലയിലെ പാരമ്പരൃ വൈദൃശാസ്ത്രമാണ്

കപ്പലുകളുടെ സുരക്ഷിതവും പരിസ്ഥിതി സൌഹൃദവുമായ നിർമ്മാണം സംബന്ധിച്ച ഹോങ്കോങ് അന്താരാഷ്ട്ര പുനർ കൺവെൻഷനിൽ പങ്കാളിയാകാനും മന്ത്രിസഭ തീരുമാനിച്ചു കപ്പൽ ഉപയോഗിക്കുന്നതാണെങ്കിൽ പുനർനിർമ്മാണത്തിന് പോലും അപകടകരമായ വസ്തുക്കളുടെ ഉപയോഗം നിയന്ത്രിക്കാനും തടയാനും ബില്ലിൽവ്യവസ്ഥയു പുതിയതായി നിർമ്മിക്കുന്ന കപ്പലുകളിൽ ഇത്തരം വസ്തുക്കളുടെ ഉപയോഗം സംബന്ധിച്ച നിയന്ത്രണം നിയമം പ്രാബലൃത്തിൽ വരുന്ന ദിവസംമുതൽ ഉ ാകും

അതേസമയം ഈ നിയന്ത്രണം യുദ്ധകപ്പലുകൾക്കും ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള വാണിജ്യേതര കപ്പലുകൾക്കും ബാധകമല്ല

ഇന്നലെ ശൂന്യവേളയിൽ സ്പീക്കറുടെ ഡയസിലേക്ക് തള്ളിക്കയറി മുദ്രാവാകൃം വിളിച്ച പ്രതിപിക്ഷ എംഎൽഎമാരായ റോജി എം ജോൺ എൽദോസ് കുന്നപ്പിള്ളി ഐ

ബാലകൃഷ്ണൻ അൻവർ സാദത്ത് എന്നിവരെയാണ് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ താക്കീത് ചെയ്തത്

ഇന്നലെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന സർവകക്ഷിയോഗത്തിൽ അംഗങ്ങൾക്കെതിരെ നടപടി എടുക്കുന്ന കാര്യം പ്രതിപക്ഷവുമായി കൂടിയാലോചിച്ച് മാത്രമെ ചെയ്യുകയുള്ളൂ എന്ന് സ്പീക്കർ ഉറപ്പു നൽകിയതായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ചൂിക്കാട്ടി എന്നാൽ അംഗങ്ങളെ സെൻഷർ ചെയ്യുന്നത് സ്പീക്കറെന്ന നിലയിൽ തന്റെ മാത്രം തീരുമാനമാണെന്ന് ശ്രീ

സുധാകരൻ സംസ്ഥാനത്തെ റോഡുകളിൽ ഏറ്റവും കൂടുതൽ അപകടം ഉാകുന്ന ബ്ലാക്ക് സ്പോട്ടുകൾ കത്തി പരിഹരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായി മന്ത്രി ജി സുധാകരൻ നിയമസഭയിൽ അറിയിച്ചു

പ്രധാന പാതകളിൽ നിശ്ചിത അകലത്തിൽ ശുചിമുറികളും വിശ്രമകേന്ദ്രങ്ങളും സ്ഥാപിക്കുമെന്നും മന്ത്രി ചോദ്യോത്തരവേളയിൽ അറിയിച്ചു

സ്മ്മേളനത്തിനു മുമ്പായി സി എ ജിയുടെ ഓഫീസിലെ മഹാത്മാഗ്യാ്സിയുടെ പ്രതിമ പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്യും

കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ മേള ഉദ്ഘാടനം ചെയ്തു

വിഖ്യാത താരങ്ങളായ അമിതാഭ് ബച്ചനും രജനീകാന്തും ചേർന്ന് മേളയ്ക്ക് ആരംഭം കുറിയ്ക്കുന്നതായി വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി പ്രകാശ് ജാവ്ദേക്കറുടെ സാന്നിധൃത്തിൽ പ്രഖ്യാപിച്ചു സിനിമ എന്ന മാധ്യമത്തിലൂടെ നമ്മുടെ സാംസ്കാരികസ്വാധീനം ആഗോള തലത്തിൽ ഉറപ്പിക്കാൻ നമുക്ക് കഴിയുമെന്ന് ശ്രീജാവ്ദേക്കർ പറഞ്ഞു

സുവർണ്ണ ജൂബിലി പുരസ്ക്കാരം പ്രശസ്ത നടൻ രജനീകാന്തിന് കേന്ദ്രമന്ത്രി സമ്മാനിച്ചു

ചീഫ് സെക്രട്ടറി ഡിജിപി തുടങ്ങി സംസ്ഥാനത്തെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ ആറ്റോറിയുടെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ ചർച്ച നടത്തും ഇന്നലെ വ്വിപ്പിധ് രാഷ്ട്രീയ പാർട്ടികളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചർച്ച നടത്തിയിരുന്നു

ജി

മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഭീകരവാദ സംഘടനകളിൽ ചേരുന്ന യുവാക്കളുടെ എണ്ണത്തിൽ ഈ വർഷം വലിയ കുറവ് ഉ ായിട്ടുടെ ന്ന് അദ്ദേഹം പറഞ്ഞു കശ്മീർ താഴ്വരയിലെ സാധാരണ ജീവിതം തടസപ്പെടുത്താൻ ഭീകരവാദികൾ ഇപ്പോഴും ശ്രമിക്കുന്നതായും എന്നാൽ അവരുടെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുത്താൻ പോലീസ് പരിശ്രമിക്കുന്നു ന്നും അദ്ദേഹം പറഞ്ഞു

മറ്റൊരു ഇന്ത്യക്കാരിയായ യശസ്വിനി ദേശ്വാൾ മത്സരത്തിൽ ആറാം സ്ഥാനം നേടി സെർബിയയുടെ സൊറാണ അരുണോവിക് വെള്ളിയും ചൈനയുടെ കിയാൻ വാങ്വെങ്കലവും നേടി

പ്രസിഡന്റ് പദവി കൂലം ലഭിച്ച പ്രത്യേക അനുകൂലൃത്തിന്റെ ഭാഗമാണ് കുറ്റവിമുക്തനാ സെക്രട്ടറിയായിരുന്നപ്പോൾ ഡി

പ്രസിഡന്റിന്റെ പാസ്പോർട്ട് തിരികെ നൽകാനും കോടതി ഉത്തരവിട്ടു

ശനിയാഴ്ച നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ തന്റെ പാർട്ടി പരാജയപ്പെട്ടതിനെ തുടർന്ന് റെനിൽ വിക്രമസിംഗെ രാജി പ്രഖ്യാപിച്ചതോടെയാണ്മഹീന്ദ രാജപക്സെ പ്രധാനമന്ത്രിയാവുന്നത് ഔദ്യോഗികമായി വിക്രമസിംഗെ സ്ഥാനമൊഴിഞ്ഞതിന് ശേഷം ഇന്ന് ഉച്ച കഴിഞ്ഞ് സത്യപ്രതിജ്ഞ നടക്കും തന്റെ ഗവൺമെന്റിന് പാർലമെന്റിൽ ഭൂരിപക്ഷം ഉ െ ങ്കിലും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ ഗോതബയ രാജപക്സെയ്ക്ക് അനുകൂലമായ ജനവിധിയെ മാനിച്ചുകൊ ് താൻ സ്ഥാനം ഒഴിയുകയാണെന്ന്വിക്രമസിംഗെ പ്രഖ്യാപിച്ചിരുന്നു

പ്രസിഡന്റ് ഡൊണൾഡ്ട്രംപിന്റെ നിർദ്ദേശ പ്രകാരം സമ്മർദ്ദം ചെലുത്തിയതായി യൂറോപ്യൻ യൂണിയനിലെ അമേരിക്കൻ അംബാസിഡർ ഗോർഡൻ സോൺലാന്റ് വെളിപ്പെടുത്തി

ട്രംപിന്റെ അഭിഭാഷകൻ റൂഡിഗിലിയാനിയാണ് ഇതിന് നിർദ്ദേശം നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു